നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന്റ് കേന്ദ്രസംഘം ഈ മാസം അവസാനത്തോടെ സംസ്ഥാനത്തെത്തും നവകേരള നിർമാണത്തിനായി നടക്കുന്ന വിഭവസമാഹരണ ത്തിൽ ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കു ന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയിയെ രാഷ്ട്രപ്പതി നിയമിച്ചു ഐഎസ്ആർഭ് ചാരക്കേസിൽ സുപ്രീംകോടതി വിധി ഇന്ന് ഏഷ്യകപ്പ് കിക്കറ്റിന് നാളെ ദുബായിൽ തുടക്കം

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ദുരന്തനി വാരണ വകുപ്പിനും റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പിഎച്ച് കുര്യൻ ഇ മെയിൽ വഴിയാണ് നിവേദനം കൈമാറിയത്

പുനരധിവാസ പാക്കേജ് വൈകാതെ കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും നിവേദന ത്തിൽ പറയുന്നു സംസ്ഥാനത്ത് പ്രളയത്തിലും മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലു മുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എത്തും കേന്ദ്ര ആഭ്യന്തരകാര്യ മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി ബി ആർ ശർമയുടെ നേതൃത്വത്തിലാണ് സംഘം എത്തുന്നത് ഊർജം ജലവിഭവം ആഭ്യന്തരം റോഡ് ഗതാഗത ഹൈവേ കുടി വെളള വിതരണ ഗ്രാമവികസനം കാർഷിക സഹകരണവും കർഷ ക്ഷേമവും ധനകാര്യ മന്ത്രാലയങ്ങളിലെ ജോയിന്റ് സെക്രട്ടറിമാർ സംഘത്തിലുണ്ടാവും കേന്ദ്ര ദുരന്തനിവാരണ അതോറിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയും നീതി ആ യോഗ് ഉപ ദേ ശ കനും ഇവർക്കൊപ്പം എത്തും ഈ മാസം അവസാനത്തോട്ടെ ഇവർ കേര ളത്തിലെത്തുമെന്നാണ് കരുതുന്നത് പ്രളയാനന്തര ആവശ്യങ്ങൾ വിലയിരുത്തുന്നതിന് യുഎൻ സംഘം സംസ്ഥാനത്ത് എത്തി തമിഴ്നാട്ടിലെയും കേരളത്തിലെയും യുനിസഫ് ഓഫീസുകളുടെ മേധാവി ജോബ് സക്കറിയ യുണൈ റ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സംസ്ഥാന കോഓർഡി നേറ്റർ ആനിജോർജ്ജ് എന്നിവരാണ് പ്രാഥമിക വിലയിരുത്തലു കൾക്കായി എത്തിയത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുളള ഉന്നതതല ഉദ്യോഗസ്ഥരുമായി തിങ്കളാഴ്ച സംഘം ചർച്ച നടത്തും കാലവർഷ്ക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരു ത്താൻ ലോകബാങ്ക് എഡിബി സംയുക്തസംഘം ഇന്ന് മലപ്പുറം പാലക്കാട് ജില്ലകൾ സന്ദർശിക്കും മലപ്പുറം ജില്ലയിൽ രണ്ടു ദിവസങ്ങളിലായാണ് എട്ടംഗ സംഘ ത്തിന്റെ സന്ദർശനം

പ്രധാനമായും റോഡുകൾ പാലങ്ങൾ കുടിവെള്ള സ്രോതസുകൾ എന്നിവയാണ് സംഘം സന്ദർശിക്കുക ലോകബാങ്ക് എഡിബി പ്രതിനിധി സംഘം കോഴിക്കോട് ആലപ്പുഴ തൃശൂർ വയനാട് ഇടുക്കി ജില്ലകളിൽ സന്ദർശനം പൂർത്തിയാക്കി ഇടുക്കി ജില്ലയുടെ പുനർനിർമിതിക്ക് ആവശ്യമായ പദ്ധതി കളും നിർദേശങ്ങളും ഞായറാഴ്ചക്കകം ലഭ്യമാക്കുന്നതിന് ജില്ലാ കലക്ടറുമായി നടന്ന ചർച്ചയിൽ സംഘം ആവശ്യപ്പെട്ടു പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസ ത്തിനൂം വാസയോഗ്യമായ ഭൂമി കണ്ടെത്തി വീടുകളോ ഫ്ളാറ്റു കളോ നിർമിക്കുന്നതിനും നടപടി സ്വീകരിക്കാൻ ദുരന്തനിവാരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു വാസയോഗ്യമല്ലാത്തതും പരിസ്ഥി തിക്ക് അനുയോജ്യമല്ലാത്തതുമായ ഭൂമി ഏതാണ്ണെന്ന് കണ്ടെത്തി പകരം വാസയോഗൃമായതും പരിസ്ഥിതിക്ക് അനൂയോജ്യമായതു മായ ഭൂമി നൽകി അതിൽ വീടുകൾ വെച്ച് ത്രാമ്യസിപ്പിക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി ഭൂമിയുടെ ലഭ്യത് കുറവുള്ള പ്രദേശങ്ങ ളിൽ ഫ്ളാറ്റുകൾ നിർമിച്ച് അതിൽ താമസിപ്പിക്കണം ഭൂമി ലഭ്യമായിടത്ത് ഓരോ കുടുംബത്തിനും മൂന്നു മുതൽ അഞ്ച് സെന്റ് വരെ ഭൂമി നൽകി അതിൽ വീടുകൾ നിർമിക്കണ മെന്നും നിർദേശിച്ചിട്ടുണ്ട്

നവകേരള നിർമാണത്തിനായി സംസ്ഥാനത്ത് മൂന്ന് ദിവസ ങ്ങളിലായി നടന്ന വിഭവ സമാഹരണത്തിൽ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറ ഞ്ഞു ജനങ്ങൾക്ക് തരാനുളള അവസരം ഉണ്ടാക്കുകയെന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും തുടർന്നും ഫണ്ട് സ്വീകരിക്കാൻ നടപടിയുണ്ടാവുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു

സംഭാവനയായി ലഭിച്ചു മന്ത്രി എ

ബാലന്റെ നേതൃത്വത്തിൽ ആറ് താലൂക്ക് കേന്ദ്രങ്ങളിൽ നിന്നാണ് സംഭാവനക്ൾ സ്വീകരിച്ചത് ഇന്ന് പാലക്കാട് ജില്ലാ കളക്ട്രേറ്റിൽ ധനസമാഹരണം നടക്കും

ആലുവയിൽ നിന്ന് സമാഹരിച്ച നാല് കോടിയിൽ പരം രൂപയും ജയരാജൻ ഏറ്റുവാ ങ്ങി

ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയി ലേക്ക് ധനസമാഹരണയജ്ഞം ഇന്ന് തുടങ്ങും മാവേലിക്കരയിൽ രാവിലെ മന്ത്രിമാരായ പി തിലോത്തമനും ജി സുധാകരനും ചേർന്നാണ് സംഭാവനകൾ ഏറ്റുവാങ്ങുന്നത് ധനസമാഹരണ യജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയിയെ രാഷ്ട്രപതി നിയമിച്ചു

നിലവിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദീപക്മിശ്ര അടുത്തമാസം രണ്ടിന് വിരമിക്കും

ഐഎസ്ആർഒ ചാരക്കേസിൽ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന സിബി മാത്യൂസ് കെ കെ ജോഷാ എസ് വിജയൻ എന്നിവർക്കെതിരെ നടപടി വേണ മെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ചീഫ്റ് ജസ്റ്റിസ് അധ്യ ക്ഷനായ ബഞ്ചാണ് വിധി പറയുന്നത് നമ്പി നാർായ്ണന് നഷ്ട പരിഹാരം വർധിപ്പിക്കുമെന്ന് വാദത്തിനിടെ കോടതി നിരീക്ഷി ച്ചിരുന്നു ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് നാളെ ദുബായിൽ തുടക്കം ഇന്ത്യ പാക്കിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ടീമു കളും ക്വാളി ഫൈ യിംഗ് ടൂർണ മെന്റ് ജയിച്ചെത്തിയ ഹോങ്കോങ്ങും ഇത്തവണ മൃത്സരത്തിനിറങ്ങും ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിലാണ് നാളെ ആദ്യമത്സരം ഇന്ത്യ ചൊവ്വാഴ്ച ഹോങ്കോങ്ങിന്റെയും ബുധനാഴ്ച പാക്കിസ്ഥാനെയും നേരിടും ഏകദിന ഫോർമാറ്റിലാണ് ഇക്കുറി മത്സരം സംഘടിപ്പിക്കുന്നത് ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ജേതാക്കളായ എട്ടു മലയാളികൾക്കും ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മന്ത്രി ഇ പി ജയര്ാജൻ അറിയിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന ചട ങ്ങിൽ ഇവരെ ആദരിക്കുകയും പ്രത്യേക ഉപഹാരങ്ങൾ നൽകു കയും ചെയ്യുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു കായികതാരങ്ങൾക്ക് പരിശീലനത്തിന് മെച്ചപ്പെട്ട സൌകര്യ ത്തോടുകൂടിയ ഇൻഡോർ സ്റ്റേഡിയം നിർമാണം പൂർത്തീകരി ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ദുരിതാ ശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഫുട്ബോൾ മത്സരവും തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് മത്സരവും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെ ന്നാവശൃപ്പെട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ കന്യാസ്ത്രീകൾ നട ത്തുന്ന സമരം ഏഴാം ദിവസത്തേക്ക് കടന്നു

സമരം ചർച്ചിനെതിരല്ലെന്നും നീതിക്കുവേണ്ടിയാണെന്നും അവർ വൃക്തമാക്കി പ്രളയം ദുരന്തം വിതച്ച കേർളത്തിന്റെ പുനഃസൃഷ്ടിക്ക് ആവ ശ്യമായി വരുന്ന പണം വളരെ വലുതാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖ രൻ കാസർകോട്ട് പറഞ്ഞു വെളളരിക്കുണ്ട് താലൂക്കിലെ ധനസമാ ഹരണ യജ്ഞം പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി പ്രളയത്തിലും ഡാംമാനേജ്മെന്റ് വീഴ്ചയിലും തകർന്ന സംസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ പണം സ്വരൂപിക്കുന്നതിന് പിടിച്ചു പറി നടത്തുന്നത് ഗവ

സ്വന്തം ഇഷ്ട്രപ്രകാര്ം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധ വഴിയോ അല്ലാതെയോ സഹായിക്കാൻ അവസരം ഒരുക്കുന്നതിന് പകരം ശമ്പളം പിടിച്ചെടുക്കൽ ഉത്തരവ് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു പണം പിരിക്കുന്നതിൽ മാത്രം ശ്രദ്ധവെയ്ക്കുന്ന ഗവ

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് സംസ്ഥാനത്തെ അധ്യാപകരിൽ നിന്നും ഗവ ജീവനക്കാരിൽ നിന്നും ഒരുമാസത്തെ ശമ്പളം പിരിച്ചെടുക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ആന്റ് ടീച്ചേഴ്സ് കോഓർഡിനേഷ്യൻ കമ്മിറ്റി സെറ്റ്കോ കൽപറ്റയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ കോളജുകൾ ശനിയ്ക്ക് ചകൾ ഉൾപ്പെടെ അവധി ദിവസങ്ങളിൽ പ്രവർത്തിക്കണുമന്ന് ഉന്ന്ത വിദ്യാഭ്യാസ വകുപ്പ് നിർദേശം നൽകി പ്രളയത്തെ തുടർന്ന് അധ്യയനദിവസ ങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കോഴ്സുകൾ സമയബന്ധിത മായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണിത്

പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഡിജിപി ലോക്നാഥ് ബെഹ്റ സന്ദർശനം നടത്തി ഇവിടങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി വിവിധ പൊലീസ് യൂണിറ്റുകൾ ശേഖ രിച്ച ജീവൻ രക്ഷാമരുന്നുകൾ ഡിജിപി കൈമാറി തിരുവനന്തപുരം മംഗലുരു മലബാർ എക്സ്പ്രസ് കണ്ണൂർ ജിലയിലെ ഏഴിമല സ്റ്റേഷനിൽ നിർത്താതെ പോയതിനെ കുറിച്ച് റെയിൽവെ അന്വേഷണം തുടങ്ങി ഇന്നലെ രാവിലെയാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്താതെ പോയത് ഹോൾഡിംഗ് സ്റ്റേഷ നായതിനാൽ സിഗ്നൽ സംവിധാനങ്ങളോ സ്റ്റേഷൻ മാസ്റ്ററോ ഏഴി ലമലയിൽ ഇല്ല കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി നിയന്ത്രണവിധേയമായ തായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞദിവസം മൂന്ന് സംശയാ സ്പദ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്